ഉപരാഷ്ട്രപതി പ്രധാനമന്ത്രി എന്നിവർ ഇന്ന് കോവിഡ് വാക്സിൻ സ്വീകരിച്ചു

സ്ഥാനാർത്ഥി നിർണ്ണയ ചർച്ചുകൾ സജീവം

സി കരാറിന്റെ വിവരങ്ങൾ മത്സ്യത്തൊഴിലാളി നേതാവാണ് തനിക്ക് കൈമാറിയതെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കിഫ്ബിയിലൂടെ നടത്തിയതെല്ലാം ഭരണഘടന വിരുദ്ധമാണെന്ന് ബി ജെ പി അധ്യക്ഷൻ കെ സുരേന്ദ്രൻ

ഉപരാഷ്ട്രപതി ഫിഠ വെങ്കയ്യ നായിഡുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇന്ന് കോവിഡ് വാക്സിൻ സ്വീകരിച്ചു

ഇതിനായി കോവിൻ വെബ്സൈറ്റിലോ ആരോഗ്യസേതു ആപ്പിലൂടെയോ രജിസ്റ്റർ ചെയ്യാം

കെ ശൈലജ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉടൻ കൊവിഡ് വാക്സിൻ സ്വീകരിക്കുമെന്ന് മന്ത്രി കെ

വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി പ്രതിനിധി ആന്റണി മുനിയറ

ആധാർ കാർഡിന്റെ അടിസ്ഥാനത്തിൽ മൊബൈൽ ആപ്പിലൂടെ തത്സമയം രജിസ്റ്റർ ചെയ്താണ് വാക്സിൻ നൽകി തുടങ്ങിയത്

അന്നേ ദിവസം മുതൽ നാമനിർദ്ദേശ പത്രികകൾ സ്വീകരിച്ചു തുടങ്ങും

എഫ് ഉഭയകക്ഷി ചർച്ചകൾക്ക് ഇന്ന് തുടക്കമായി

ഡി എഫ് സീറ്റ് വിഭജനം സംബന്ധിച്ച് ജോസഫ് വിഭാഗവുമായി ഇന്ന് കോൺഗ്രസ് ചർച്ച നടത്തി

ജെ പിയുടെ ചർച്ചകളും പുരോഗമിക്കുകയാണ്

ഡി

എന്നാൽ കഴിഞ്ഞ തവണത്തെ നേട്ടം കൂടുതൽ മണ്ഡലങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനാകുമെന്ന് അവകാശപ്പെടുന്നു

ജെ പിയും ശ്രമിക്കുന്നത്

ഡി

ഇതിനിടെ എം പിയായി തെരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്ന് ഹൈബി ഈഡൻ രാജിവെക്കുകയും തുടർന്നുണ്ടായ ഉപതെരഞ്ഞെടുപ്പിലും യു ഡി

കോൺഗ്രസിലെ ടി

നിലവിൽ പെരുമ്പാവൂർ അങ്കമാലി ആലുവ കളമശ്ശേരി പറവൂർ കുന്നത്തുനാട്പിറവംതൃക്കാക്കര എന്നി മണ്ഡലങ്ങളാണ് യു ഡി

വൈപ്പിൻ കൊച്ചി തൃപ്പൂണിത്തുറ മൂവാറ്റുപുഴ കോതമംഗലം എന്നിവയാണ് എൽ ഡി

സി കരാറിന്റെ വിവരങ്ങൾ സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി യൂണിയൻ സംസ്ഥാന ് നേതാ്പാണ് തനിക്ക് വിവരം കൈമാറിയതെന്ന് പ്രതിപക്ഷ് ൾതാവ് പറഞ്ഞു

സുരേന്ദ്രൻ കോവിഡ് കാലത്ത് പോലും രാജ്യത്തിന്റെ സാമ്പത്തിക നില തകരാതെ നോക്കിയ കേന്ദ്ര ധനമന്ത്രി നിർമലാ സീതാരാമനെയാണ് ധനമന്ത്രി തോമസ് ഐസക് വിമർശിക്കുന്നതെന്ന് ബി ജെ

ജനങ്ങളെ ജാമ്യാ നിർത്തിയാണ് ധനവകുപ്പ് കൊള്ള നടത്തുന്നതെന്നും കിഫ്ബിയിലൂടെ നടത്തിയതെല്ലാം ഭരണഘടന വിരുദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു

കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് പ്രതിനിധി ഫൈസൽ അലിമുത്ത്

എസ് ഒഴികെയുള്ള എല്ലാ ട്രേഡ് യൂണിയനുകളും വാഹന പണിമുടക്കിൽ പങ്കെടുക്കും

സർവകലാശാലകൾ നാളെ നടത്താൻ നിശ്ചയിച്ചിരുന്ന എല്ലാ പരീക്ഷകളും മാറ്റിവച്ചു സാങ്കേതിക സർവകലാശാലയുടെ പരീക്ഷയും നാളത്തെ ഹയർസെക്കന്ററിപരീക്ഷകളും മാറ്റിവെച്ചിട്ടുണ്ട്

എഫ് തെക്കൻ മേഖല തീരദേശ ജാഥ നാളെ ആരംഭിക്കുമെന്ന് യുഡിഎഫ് കൺവീനർ എംഎം ഹസ്സൻ അറിയിച്ചു കടൽകൊള്ളയുടെ മുഴുവൻ വിവരങ്ങളും ജുഡീഷ്യൽ അന്വേഷണത്തിന് വിധേയമാക്കണമെന്നും ഫിഷറീസ് മന്ത്രി രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ജാഥ

സി റാങ്ക് ഹോൾഡേഴ്സ് നട്ടത്തി വന്ന സമരത്തിന് അനുഭാവം പ്രകടിപ്പിച്ച് യൂത്ത് ക്ടോൺഗ്രസ് നടത്തി വന്ന നിരാഹാര സമരം ്ട്അവസാനിപ്പിച്ചു